അൺലോക്ക് രണ്ടാം ഘട്ട മാർഗ നിർദേശങ്ങൾ കേന്ദ്രം പുറത്തിറക്കി

എസ് എൽ സി പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ്

ഈ മാസം എട്ടിനാണ് അൺലോക്ക് ഒന്നാംഘട്ടം പ്രാബല്യത്തിൽ വന്നത് രുമ കണ്ടെയിൻമെന്റ് സോണുകൾക്ക് പുറത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകി അൺലോക്ക് രണ്ടാംഘട്ടവുമായി ബന്ധപ്പെട്ട മാർഗ നിർദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും

കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി

അന്താരാഷ്ട്ര വിമാന സർവീസുകളും മെട്രോ ട്രെയിൻ സർവീസും ഉണ്ടാകില്ല സിനിമാ തിയേറ്ററുകൾ ജിംനേഷ്യങ്ങൾ സ്വിമ്മിങ് പൂളുകൾ വിനോദ പാർക്കുകൾ ബാറുകൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവ തുറക്കില്ല സാമൂഹ്യ രാഷ്ട്രീയ കായിക വിനോദ വിദ്യാഭ്യാസ സാംസ്കാരിക മത ചടങ്ങുകളും കൂട്ടായ്മകളും അനുവദിക്കില്ല

ഈ പ്രവർത്തനങ്ങളിൽ സ്ഥിതി പരിശോധിച്ച് കണ്ടെയിൻമെന്റ് സോണിന് പുറത്ത് ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിരോധിക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് മാർഗ നിർദേശത്തിൽ പറയുന്നു അന്തർ സംസ്ഥാന അന്തർ ജില്ലാ യാത്രകൾക്കും ചരക്കു നീക്കങ്ങൾക്കും നിയന്ത്രണമുണ്ടാവില്ല

രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രതിരോധ സംവിധാനത്തിനും ദേശീയ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാലാണ് നിരോധനമെന്ന് ഇലക്ട്രോണിക്സ് ആന്റ് ഐ

വൈറസ് ക്ലീനർ എക്സെന്റർ ഡിയു റെക്കോർഡർ ഷെയർ ഇറ്റ് യു സി ബ്രൌസർ മെയിൽ മാസ്റ്റർ കാം സ്കാനർ തുടങ്ങിയവ നിരോധിച്ച മൊബൈൽ ആപ്പുകളിൽപെടുന്നു

തിരുവനന്തപുരം കാസർകോട് ജില്ലകളിൽ നാല് പേർക്ക് വീതമാണ് രോഗം സ്ഥിരീകരിച്ചത് രുമ പൊന്നാനി താലൂക്കിൽ ഇന്നലെ വൈകിട്ട് അഞ്ചുമുതൽ ജൂലൈ ആറിന് അർധരാത്രി വരെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു എടപ്പാൾ പൊന്നാനി പ്രദേശങ്ങളിൽ കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ വ്യാപകമായി ടെസ്റ്റുകൾ നടത്തുമെന്നും പനി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള എല്ലാവരെയും പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി തിരുവന്തപുരത്ത് പറഞ്ഞു ആരോഗ്യപ്രവർത്തകർ ആശുപത്രി ജീവനക്കാർ ബാങ്ക് ജീവനക്കാർ ട്രാൻസ്പോർട്ട് ഹബ്ബുകൾ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എന്നിവർക്ക് ലക്ഷണമില്ലെങ്കിൽ കൂടി പരിശോധന നടത്തും മാർക്കറ്റുകളിലും കോവിഡ് പരിശോധന നടത്തും ദരര പൊന്നാനി താലൂക്കിൽ ലോക്ക് ഡൌൺ കാലയളവിൽ അവശ്യ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഒഴികെ എല്ലാ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളും സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പൂർണ്ണമായും അടച്ചിടും ആശുപത്രികൾ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങൾ പെട്രോളിയം പമ്പുകൾ പോസ്റ്റ് ഓഫീസുകൾ എന്നിവ നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കും മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ യാത്രകൾ അനുവദിക്കില്ല രുര സമൂഹ വ്യാപന മുണ്ടോ എന്നറിയാനായി തിരുവനന്തപുരത്തു നിന്ന് പത്ത് പേരടങ്ങുന്ന റാപ്പിഡ് ടെസ്റ്റ് സംഘം എടപ്പാളിലെത്തി ആയിരത്തോളം പേരുടെ പരിശോധനയാണ് സംഘം ആദ്യം നടത്തുക

തൃശൂർ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ രണ്ടു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ രണ്ട് കണ്ടെയിൻമെന്റ് സോൺ കൂടി പ്രഖ്യാപിച്ചു

തലശ്ശേരി നഗരസഭയിലെയും ചെമ്പിലോട് പാട്യം പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുമാണ് പുതുതായി കണ്ടെയിൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയത് രുദ എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിച്ച് ഐ

യുവിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് പേരുടേയും നില ഗുരുതരമായി തുടരുകയാണെന്ന് നോഡൽ ഓഫീസർ അറിയിച്ചു ഇതിൽ രണ്ടു പേർ കുവൈത്തിൽ നിന്നും എത്തിയവരാണ് രുമ മാഹിയിൽ ആയുർവേദ മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർക്കും പള്ളൂരിലെ രണ്ടുപേർക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു സമൂഹ വ്യാപന മുണ്ടായോ എന്നറിയാനായി നടത്തിയ റാൻഡം പരിശോധനയിലാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്

യും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അമ്പതോളം പേർ നിരീക്ഷണത്തിലായി മാഹി പള്ളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാലക്കര കോയ്യോടൻ തെരു പുത്തനങ്ങാടി ഭാഗങ്ങൾ കണ്ടെയിൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിതായി മാഹി പോലീസ് അറിയിച്ചു

കോട്ടക്കൽ പാലത്തറയിൽ പഴയസാധനങ്ങൾ ശേഖരിച്ച് വിൽക്കുന്നയാളായിരുന്നു

കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി തമിഴ്നാട്ടിൽ സംസ്കരിച്ചു രുമ മികച്ച പൊതുജനാരോഗ്യ സംവിധാനം ഉള്ളതിനാലാണ് കൊവിഡിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതെന്ന് മന്ത്രി കെ

ദേദ ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു കോടി നാല് ലക്ഷം പിന്നിട്ടു

ഉച്ചക്ക് രണ്ടിന് മന്ത്രി പ്രൊഫ

രവീന്ദ്രനാഥ് തിരുവനന്തപുരത്ത് ഫലം പ്രഖ്യാപിക്കും

വിവിധ ഗവൺമെന്റ് വെബ്സൈറ്റുകളിലും പി

മുഖ്യമന്ത്രി പിണറായി വിജയനും ഹൈക്കോടതി ചീഫ്ജസ്സിസ് എസ് മണികുമാറും സംയുക്തമായി വൈകീട്ട് മുന്നിനാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം നിർവഹിക്കുക ആറ്റിങ്ങൽ കരുനാഗപ്പള്ളി പത്തനംതിട്ട ഹരിപ്പാട് കോട്ടയം ചങ്ങനാശ്ശേരി ഇടുക്കിയിലെ പൈനാവ് കട്ടപ്പന പെരുമ്പാവൂർ കുന്നംകുളം പട്ടാമ്പി പെരിന്തൽമണ്ണ കോഴിക്കോട് കൊയിലാണ്ടി കൽപ്പറ്റ തലശ്ശേരി തളിപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ ഇവ ജൂലൈ ഒന്ന് മുതൽ പ്രവർത്തിച്ചു തുടങ്ങും

എഫിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേരളാ കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്നു രാവിലെ കോട്ടയത്ത് ചേരും രാഷ്ട്രീയ നിലപാട് യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി അറിയിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച ധാരണ ലംഘിച്ചതിന്റെ പേരിൽ കേരളാ കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗത്തെ യു

എഫ് ഇന്നലെ പുറത്താക്കിയിരുന്നു

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭക്തജനങ്ങളെ പ്രവേശിപ്പാക്കാതെയായിരുന്നു വൈശാഖോത്സവം

കോഴിക്കോട് ജില്ലയിലെ കോട്ടൂർ പനങ്ങാട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തൃക്കുറ്റിശ്ശേരി വയൽപീടിക പുതിയപാലത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

കുവൈറ്റ് അബുദാബി ദോഹ ദുബായ് എന്നിവിടങ്ങളിൽ നിന്നായി ആറ് വിമാനങ്ങളിലാണ് പ്രവാസികൾ എത്തിയത്